സുഗമമായ വിതരണ ശൃംഖല ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി

ഇന്നുമുതൽ രാത്രി കർഫ്യൂ കോവിഡ് കൂട്ടപ്പരിശോധന വീണ്ടും നടത്താൻ തീരുമാനം

ചെന്നൈ സൂപ്പർ കിങ്സിന് തകർപ്പൻ ജയം

ഗതാഗതം ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്ക് സർക്കാരിന്റെ പിന്തുണയും സഹായവും ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ മരുന്നു നിർമ്മാണ മേഖലയുടെ സേവനങ്ങളെ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു കോവിഡിന്റെ രണ്ടാം തരംഗവും രോഗിക്കളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനയും പരിഗണിച്ച് മരുന്നുകളുട്ടി ഉത്പാദനം വർദ്ധിപ്പിച്ചതും റെംഡെസിവിർ പോലുള്ള മരുന്നു്കളുട്ട് വിലകുറച്ചതും അഭിനന്ദനാർഹമാണെന്ന് പ്രധ്യാന്മുന്തി പറഞ്ഞു രാജ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനികളുടെ ഇത്തൂർ ശ്രമങ്ങളാണ് ഇന്തൃയ്ക്ക് ആഗോള മരുന്ന് നിർമ്മാണ്ൽല എന്ന ഖ്യാതി നേടിക്കൊടുത്തത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നേരത്തെവിവിധ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും രാജ്യത്തെ കോവിഡ് സ്ഥിതി സംബന്ധിച്ച് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തിയിരുന്നു

അടുത്ത മാസം ഒന്ന് മുതലാണ് വാക്സിൻ നൽകിത്തുടങ്ങുക

ആദ്യ ഘട്ടത്തിൽ സൌജന്യമായി വാക്സിൻ നൽകും

ഇതിനുശേഷം കോവിഡ് പോരാളികൾക്ക് പ്പുതിയ ഇൻഷറൻസ് പോളിസി നിലവിൽ വരും

എന്നാൽ അവശൃ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും അടിയന്തിര സാഹചരൃങ്ങൾക്കായി പുറത്തിറങ്ങുന്നവരെയും തടയില്ല

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണിത്

എല്ലാ യോഗങ്ങളും തുറസ്സായ സ്ഥലത്ത് മാത്രമായിരിക്കുമെന്നും സംസ്ഥാനത്ത് ആറ് കോടി മുഖാവരണങ്ങളും അണുനാശിനികളും വിതരണം ചെയ്യുമെന്നും പാർട്ടി പ്രസ്താവിച്ചു

രാജ്യത്തിന്റെ അതിർത്തി മേഖലയിൽ സമീപ കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ ചർച്ചാവിഷയമായി ഐക്യരാഷ്ട്ര രക്ഷാ സമിതി വിഷയങ്ങൾ സംബന്ധിച്ച് ഇരുരാജ്യങ്ങളുടെയും കാഴ്ചപ്പാടുകളും ആരോഗ്യ രംഗത്തെ സഹകരണം സംബന്ധിച്ചും ചർച്ച ചെയ്തതായി ജയ്ശങ്കർ അറിയിച്ചു

അദ്ദേഹത്തിന്റെ ആരോഗൃനില തൃപ്തികരമാണെന്നാണ് സൂചന

അദ്ദേഹം എറാവാലിയെ ഫാം ഹൌസിൽ നിരീക്ഷണത്തിൽ തുടരുകയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

അതേസമയം കൊറോണ്ണ് ഐവറസിന്റെ ഇരട്ട വകഭേദം മറ്റ് നിരവധി രാജ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു

ഇതുസംബന്ധിച്ച് സർക്കാർ ഉത്തരവായി ഒരു റിപ്പോർട്ട്

കേരളത്തിൽ രാത്രി ഒൻപത് മുതൽ രാവിലെ അഞ്ച് വരെയാണ് നിയന്ത്രണം

ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നതിനും പുറത്തിറങ്ങുന്നതിനുമാണ് നിയന്ത്രണം

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാവും പാൽ പത്രം മെഡിക്കൽ ഷോപ്പുകൾ എന്നിവയ്ക്കും മാധ്യമ പ്രവർത്തകർക്കും ഇളവ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോഴിക്കോട് എറണാകുള്ം മ്ലപ്പുറം തൃശൂർ കണ്ണൂർ ജില്ലകളിലാണ് കൂടുതൽ ട്രോഗബാധിതർ

അതിനിടെ സംസ്ഥാനത്ത് കോവിഡ് കൂട്ടപ്പരിശോധന നടത്താൻ സർക്കാർ തീരുമാനിച്ചു നാളെയും മറ്റന്നാളുമായി മൂന്ന് ലക്ഷം പേരെ പരിശോധിയ്ക്കാനാണ് ലക്ഷ്യം

പൂരം ചടങ്ങുകൾ മാത്രമായി നടത്തും

അതിനിടെ തമിഴ്നാട്ടിൽ സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ചിട്ടുള്ള രാത്രികാല കർഫ്യൂ ഇന്ന് നിലവിൽ വരും

രാജ്യത്തെ നിയമനിർമ്മാണ സഭാ അദ്ധ്യക്ഷന്മാരുടേയും മറ്റ് നേതാക്കളുടെയും യോഗത്തിൽ അദ്ധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു ലോക്സഭാ സ്പീക്കർ

വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള ചൈനീസ് പണ്ഡിതരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം

എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ തകർത്ത് ചെന്നൈ സൂപ്പർ കിങ്ങ്സ്